രാജ്യത്ത് ഇതുവരെ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തത് ഒരു കോടി നാല് ലക്ഷത്തിലേറെ പേർ വിദേശത്ത് നിന്നെത്തുന്നവർക്ക് പുതിയ മാർഗ്ഗ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു

അമേരിക്ക വീണ്ടും പാരീസ് കാലാവസ്ഥാ ഉച്ചകോടി കരാറിന്റെ ഭാഗമായി മെക്സിക്കോ അതിർത്തി തുറന്നു

ഇരുപക്ഷത്തെയും കോർ കമാൻഡർമാർ ചർച്ച നയിക്കും

ഒന്നാംഘട്ട സേനാപിന്മാറ്റം പൂർത്തീകരിച്ച സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ച ഇന്ത്യയുമായി മികച്ച രീതിയിൽ ആശയവിനിമയം നടത്തിവരികയാണെന്നും ഇരുരാജ്യത്തേയും ജനതാൽപരൃം കണക്കിലെടുത്ത് അയൽരാജ്യങ്ങൾ ആരോഗ്യകരമായ ബന്ധം സൂക്ഷിക്കേണ്ടതുണ്ടെന്നും ചൈനീസ് വിദേശകാര്യ വക്താവ് ഹൂവ ചൂന്യാങ് മാധ്യമങ്ങളോട് പറഞ്ഞു

കൃഷി അടിസ്ഥാന സൌക്ടർച്ചു നിർമ്മാണം മാനവ വിഭവശേഷി വികസനം അടിത്തട്ടിലേക്ക് സേവനം ലഭ്യമാക്കൽ ആരോഗ്യം പോഷണം തുടങ്ങിയവയെക്കുറിച്ച് ചർച്ച നടത്തുകയെന്നതാണ് യോഗത്തിന്റെ അജണ്ട വകുപ്പുതലത്തിലും ആഭ്യന്തര തലത്തിലുമുള്ള വിഷയങ്ങൾ പരസ്പരം ചർച്ച ചെയ്യാനുള്ള അവസരമാണ് ഗവേണിംഗ് കൌൺസിൽ പ്രദാനം ചെയ്യുന്നത്

കേന്ദ്രഭരണ പ്രദേശമായ ശേഷം ലഡാക്കും ആദ്യമായി പങ്കെടുക്കുന്നു എന്ന പ്രത്യേകതയും ആറാമത് ഗവേണിംഗ് കൌൺസിൽ യോഗത്തിനുണ്ട് കേന്ദ്രമന്ത്രിമാരും സി ഇ ഒ അടക്കമുള്ള നിതി ആയോഗ് പ്രതിനിധികളും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിന്റെ ഭാഗമാകും

ഡി ഒ വികസിപ്പിച്ച കരസേനയ്ക്ക് വേണ്ടിയുള്ള ഹെലീന മിസൈലും വ്യോമസേനയ്ക്കു വേണ്ടിയുള്ള ധ്രുവാസ്ത്രയുമാണ് മരുഭൂമി മേഖലയിൽ പരീക്ഷിച്ചത് മിസൈലുകളുടെ പ്രവർത്തന മികവ് വിലയിരുത്താൻ അഞ്ച് തവണ പരീക്ഷണം നടത്തി മികച്ച നേട്ടം കൈവരിച്ച ഡി

ഡി ഒ യെയും കരസേനയെയും വ്യോമസേനയെയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിങ് അഭിനന്ദിച്ചു

ബ്രിട്ടൻ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നും ഇന്ത്യയിലെത്തുന്നവരെ പ്രത്യേകം ലക്ഷ്യമിട്ടാണിത്

സി

ഇന്ത്യയിൽ എത്തിയാൽ സ്വന്തം ചെലവിൽ പരിശോധന നടത്തണം

വൃക്തിഗത രേഖകൾ ഡിജിലോക്കർ സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളവർക്ക് പാസ്പോർട്ട് സേവനങ്ങൾക്കായി യഥാർത്ഥ രേഖയ്ക്ക് പകരം അവയുടെ ഡിജി ലോക്കർ ലിങ്ക് നൽകിയാൽ മതി പാസ്പോർട്ട് സേവനങ്ങൾ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ പേപ്പർരഹിതമാക്കാനാകുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി

ലക്ഷദ്വീപ് വനം ്പരിസ്ഥിതി വകുപ്പിന്റെ കീഴിൽ സ്ഥാപിതമായ അടൽ പര്യവരൺ ഭവന്റെ ഉദ്ഘാടനം ഇന്നലെ കവരത്തിയിൽ കേന്ദ്രമന്ത്രി നിർവ്വഹിച്ചു

അമേരിക്കൻ വിദേശ കാര്യ സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ ട്വിറ്ററിലൂടെയാണ് ഇക്കാരൃം അറിയിച്ചത് കാലാവസ്ഥാ പ്രതിസന്ധിയ്ക്കെതിരായ യോജിച്ച പോരാട്ടം തുടരുമെന്നും പാരീസ് ഉച്ചകോടി കരാർ പ്രകാരം കാർബൺ ബഹിർഗമനം കുറച്ചുകൊണ്ടു വരാനുള്ള നടപടികൾ അമേരിക്ക ആരംഭിച്ചുകഴിഞ്ഞെന്നും അദ്ദേഹം അറിയിച്ചു

കഴിഞ്ഞ വർഷമാണ് അമേരിക്ക ആഗോളകരാറിൽ നിന്നും ഔദ്യോഗികമായി പുറത്തുപോയത്

ഇറാനുമായി വീണ്ടും നയതന്ത്ര ചർച്ചയാകാമെന്ന അമേരിക്കൻ നിലപാട് സ്വാഗതാർഹമാണെന്ന് യു

ആണവ കരാറിൽ നിന്ന് പിന്മാറിയ ഡോണൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാട് തിരുത്തുമെന്ന് ൂ ബൈഡൻ ഭരണകൂടം പ്രഖ്യാപിച്ചിരുന്നു

മുൻഗാമി ഡോണൾഡ് ട്രംപ് നടപ്പാക്കിയ കുടിയേറ്റ വിരുദ്ധമായ നയം പ്രസിഡന്റ് ജോ ബൈഡൻ തിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അഭയാർത്ഥികളെ അമേരിക്ക സ്വീകരിക്കുന്നത്

വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കർ എത്യോപൃ ഉപപ്രധാനമന്ത്രി ഡിമെക് മെക്ക്നൻ ഹസെൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പിട്ടത് നാല് ദിവസത്തെ ഇന്ത്യൻ സന്ദർശനത്തിനെത്തിയതാണ് എത്യോപ്യൻ ഉപ പ്രധാനമന്ത്രി

ബന്ദിപ്പോരയിൽ പാപാചാൻ ബന്ദിപ്പോറ പാലത്തിന് സമീപമാണ് ഇവർ പിടിയിലായത് ബന്ദിപ്പോറയിൽ സുരക്ഷാസേനയ്ക്ക് നേരെ നടന്ന ഗ്രനേഡ് ആക്രമണത്തിലടക്കം ഇവർക്ക് പങ്കുള്ളതായി കരുതുന്നു

ഓരോ ബാങ്കും ഓരോ രീതിയിൽ ലോക്കർ കൈകാര്യം ചെയ്യുന്നത് ശരിയല്ലെന്ന് ജസ്റ്റിസുമാരായ മോഹൻ ശുന്റുന്ന ഗൌഡർ വിനീത് ശരൺ എന്നിവർ നിരീക്ഷിച്ചു ഉപഭോക്ട്രാറ്റിന്റെ കുടിശ്ശിക ഈടാക്കാൻ ലോക്കർ തുറന്ന ബാങ്ക് ന്ട്പടി ചോദ്യം ചെയ്ത ഹർജിയാണ് പരിഗണിച്ചത്

വെബ്സൈറ്റിൽ എല്ലാ വകുപ്പുകളുടെയും പേരും ഉദ്യോഗസ്ഥരുടെ വിവരവും ഉണ്ടാകും ഏതു വകുപ്പിൽ ഏതു തലത്തിൽ അഴിമതി നടന്നാലും അറിയിക്കാൻ സാധിക്കും

ബാക്കി സ്ഥലത്തിന്റെ കാരൃത്തിൽ നേരത്തെ അനുവദിച്ച മൊറൊട്ടോറിയം ബാധകമാകും

ലോകപ്രശസ്ത വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ഖജുരാഹോ

വിദർഭാ മേഖലയിലെ നിരവധി ജില്ലയിൽ അഞ്ചുപേരിൽ കൂടുതൽ കൂട്ടം ചേരുന്നതിനും രാത്രി യാത്രയ്ക്കും വിലക്കേർപ്പെടുത്തി

എറണാകുളം കോട്ടയം ഇടുക്കി ആലപ്പുഴ ജില്ലക്ളിൽ നാളെ മഴയ്ക്ക് സാധ്യതയുണ്ട്